സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഐക്യരാഷ്ട്ര സംഘടനയ്ക്കു കീഴിലെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്

അന്തരിച്ച കേന്ദ്രമന്ത്രി രാം വിലാസ് ഷ്യാസ്ഥാന് അന്തിമോപചാരമർപ്പിച്ച് രാഷ്ട്രപതിയും ് പ്രധാനമന്ത്രിയും സംസ്കാരം നാളെ

പ്രധാന പലിശനിരക്കുക്ളീൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വിമാസ ധനക്ടാര്യ് നയ പ്രസ്താവന പുറത്തിറക്കി

ഐപിഎല്ലിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും പട്ടിണിക്കും പരിഹാരം കാണാൻ നടത്തിയ ശ്രമങ്ങൾക്കാണ് പുരസ്കാരം കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ പ്രശ്ന ബാധിത മേഖലകളിലെ സംഘർഷ സാഹചര്യ ങ്ങളിൽ അയവ് വരുത്തുന്നതിന് നിരവ്പധി ശ്രമങ്ങൾ നടത്തിവരുന്ന സംഘടന യുദ്ധത്തിലൂർ സംഘർഷത്തിനും വിശപ്പ് ഒരു കാരണമാകുന്നത് തുടിയ്കാനും നടപടികൾ സ്വീകരിച്ചു വരുന്നു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ഇരുവരും ആദരാഞ്ജലി അർപ്പിച്ചത്

വെങ്കയ്യ നൃമ്യിൽപു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷീ രൂപിശങ്കർ പ്രസാദ് പ്രകാശ് ജാവദേക്കർ ഡോ ഹർഷ്ട് പ്പർധൻ ബിജെപി പ്രസിഡന്റ് ജെ പി നദ്ദ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സിപിഐയിലെ ഡി ക്രാ്ജ എൻസിപി നേതാവ് ശരത് പവാർ തുടങ്ങിയ നേതാക്കളും പാസ്വാന് അന്ത്യാഞ്ജലി അർപ്പിച്ചു

മന്ത്രി രാം വിലാസ് പാസ്ഥാന്റെ നിര്യാണത്തെ തു ടർന്നാണ് വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കാൻ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ശ്രീ ഗോയലിന് നിർദേശം നൽകിയത്

കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിനിടെ സമ്പദ് വ്യവസ്ഥ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നടപ്പു സാമ്പത്തിക വർഷവും അടുത്ത വർഷവും ആവശ്യമുള്ളിടത്തോളം കാലം അനുകൂല നിലപാട് നിലനിർത്താനും ധനനയ സമിതി തീരുമാനിച്ചു

ഇന്ത്യയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ അ്വർ നടത്തുന്ന സേവനത്തിൽ രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു നിരവധി ജീവിതങ്ങളിൽ പോസ്റ്റൽ ജീവനക്കാർ സന്തോഷം കൊണ്ടു വരുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യും

ഒരു ലക്ഷത്തോളം പേർക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ ലഭിക്കുന്ന എസ്എംഎസ് ലിങ്ക് വഴി പ്രോപ്പർട്ടി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ കഴിയും

ഭായ് തരു സിങ് എന്ന പേര് എല്ലായ്പ്പോഴ്ചും പ്രൈര്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും പര്യായിമ്ടുണെന്ന് ശ്രീ മോദി ട്വീറ്റ് ചെയ്തു

കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിൽ ആയിരത്തിലേറെപ്പേർക്ക് രോഗബാധയുണ്ട്

രണ്ടു ലക്ഷത്തിലധികം മരണവും ഇവിടെ റിപ്പോർട്ട് ചെയ്തു

ആദ്യ ഘട്ടത്തിൽ ഊട്ടിക്കും കൂനൂറിനുമിടയിൽ ഇരുദിശകളിലേക്കും മൂന്ന് സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു

പശ്ചിമഘട്ട മലനിരകളിലെ മേട്ടുപാളയം മുതൽ ഊട്ടി വരെയാണ് സാധാരണ സർവീസ്

ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഫീൽഡിംഗ്ട് ്ത്ത്ത്തെടുത്തു

ഈ മാസം ഏഴാം തീയതിക്കുമുമ്പ് പൊതുഅറിയിപ്പ് പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ കക്ഷികളുടെ രജിസ്ട്രേഷന്റെ നോട്ടീസ് കാലയളവാണ് കുറച്ചത് കോവിഡ് സാഹചര്യം കണക്കിലെടുത്താണ് നടപടി

വിതരണ കമ്പനികൾ ചരക്കുകളൊന്നും നൽകാതെ കയറ്റുമതിക്കാർക്ക് ബില്ലുകൾ മാത്രമാണ് നൽകിയതെന്ന് കണ്ടെത്തി